ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു

ലോഡ് ഷെഡ്സിങ്ങോ ൃഷ്വർകട്ടോ ഉണ്ടാകില്ലെന്ന് മന്ത്രി എം

എല്ലാ കായിക പ്രതിഭകൾക്കും ജോലി നൽകുമെന്ന് മന്ത്രി ഇ

ജയരാജൻ

എത്തിച്ച മലയാളികൾ കൊറോണ വൈറസ് ബാധ ഇല്ലെന്ന് സ്ഥിരീകരിച്ചതോടെ നാട്ടിലേക്ക് മടങ്ങിത്തുടങ്ങി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം

നിര്യാണത്തിൽ അനുശോചന പ്രവാഹം സംസ്കാരം ഇന്ന് വൈകിട്ട്

എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ഉത്തരവ് നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടൂൺ്ടെന്നും ഗവൺമെന്റ് അറിയിച്ചു

എസ്

ബി യുടെ വൈദ്യുതി അദാലത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി വൈദ്യുതി ചാർജ്ജ് വർധിപ്പിക്കില്ല ക്ഷാമം നേരിട്ടാൽ പുറത്ത് നിന്നും വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു

ജയരാജൻ ഇതിനായി സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിക്കും

രാജുഇൻഡ്രോ കാട്ടുതീയുടെ പശ്ചാത്തലിത്തിൽ സംസ്ഥാനത്ത് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടു്ണ്ടെന്ന് വനംവകുപ്പ് മന്ത്രി കെ

തീ കെടുത്താൻ ആധു്നിക സൌകര്യങ്ങളോടു കൂടിയ രണ്ട് വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി കെ

വിശദാംശങ്ങളുമായി വയനാടു നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസന്റ്

അടിയന്തര പരിഹാരം തേടി മുഖ്യമന്ത്രി പിണറായി വ്ിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായി ബന്ധപ്പെട്ടു പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന് തമിഴ്നാട് ഉറപ്പുനൽകി

വിഷയത്തിൽ ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ ലീഗിന്റെ വാദം കേൾക്കണമെന്നാണ് ആവശ്യം

കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചാൽ ദേശീയപാത വികസനം എന്ന സംസ്ഥാനത്തിന്റെ സ്വപ്നം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും കാസർഗോഡ് കണ്ണൂർ ജില്ലകളുടെ പണി ഈ വർഷ്ട്ട് തന്നെ ആരംഭിക്കാനും കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചു നീല്വിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് നിലേശ്വരം റെയ്യിൽവേ മേൽപ്പാലം കഴക്കൂട്ടം മേൽപ്പാലം എന്നിവയുള്ട് കാസർഗോഡ് കണ്ണൂർ ജീല്ലകളിലായി നാലു റീച്ചുകളുടെ ടെണ്ടർ നടപടി കേന്ദ്രത്തിലെ ് എസ്

സി അനുമതിക്കായി കാക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ പാലോളി മൂരാട് പാലങ്ങൾ ടെണ്ടർ നടപടിയിലാണെന്നും ദേശീയപാത വികസന പുരോഗതി വിലയിരുത്തിയശേഷം അദ്ദേഹം അറിയിച്ചു

ഇവർക്ക് ആരോഗൃവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന നോഡൽ ഓഫീസർ അമർ ഫെറ്റിൽ പറഞ്ഞു

മുഖ്യമന്ത്രി പിണറായി പ്പീജ്യൻ കെ

സി സി അധൃക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രരൂ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി തുടങ്ങിയവർ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ച് മണിയോടെ കുമാരപുരം കലാകൌമുദി ഗാർഡൻസിൽ നടക്കും

മണി മലയാള മാധ്യമ രംഗത്തെ അതികായനായ എം എസ് മണിയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ജയരാജൻ എ

ബാലൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി

സുധീരൻ സിപിഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു പ്രഗത്ഭനായ മാന്യമ പ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമ പ്രവർത്തകനെയാണ് നഷ്ടപ്പെട്ടതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു

രജിസ്ട്രേഷൻ ഇല്ലാത്ത് ഹൌസ് ബോട്ടുകൾ തുറമുഖവകുപ്പ് പിടിച്ചെടുക്കും ഹൌസ് ബോട്ട് ഉടമകൾ ഗുരുതരമായ നിയമലംഘനം നടത്തുന്നതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി ബോട്ടുകളിൽ നിന്നുള്ള മാലിനൃം കായലിലേക്ക് തള്ളുന്നത് ഒഴിവാക്കാൻ ബയോ ടോയ്ലറ്റ് നിർബന്ധമാക്കും

ഹൌസ് ബോട്ടുകളിലെ അടുക്കളയിൽ പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകും ജീവനക്കാർക്ക് ലൈസൻസും യൂണിഫോമും നിർബന്ധമാക്കാനും യോഗത്തിൽ തീരുമാനമായി

ഇന്ന് ആറ് ജില്ലകളിൽ രണ്ട് മുതൽ മൂന്ന് ക്ലിൾ സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധൃതയുണ്ടെന്ന് കാല്ാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം പകൽ മൂന്നുവരെ കുട്ടികളും ഗർഭിണികളും പ്രായമായവരും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് ധാരാളം വെള്ളം കുടിക്കണം നിർമാണ തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ ട്രാഫിക് പോലീസുകാർ തുടങ്ങി നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തൊഴിൽ ചെയ്യുന്നവർ ആവശ്യമായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കണം

യെദ്യൂരപ്പ പിണറായി വിജയൻ കേരളത്തിൽ നിന്നുള്ള ബയോ മെഡിക്കൽ മാലിന്യങ്ങൾ കർണാടകയുടെ അതിർത്തി മേഖലകളിൽ തള്ളുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് കർണാടക മുഖ്യമന്ത്രി ബി

കേരളവുമായി അതിർത്തി പങ്കിടുന്ന മൈസൂരു കുടക് ചാമരാജ്നഗർ ജില്ലകളിൽ കേരളത്തിൽ നിന്നുള്ള ബയോ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളുന്നതായി നേരത്തെ കർണാടക മുഖ്യമന്ത്രി മാധ്യമങ്ങളിലൂടെ പരാതിപ്പെട്ടിരുന്നു ജീവനി പദ്ധതി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ജീവനി പദ്ധതിക്ക് നാളെ വട്ടിയൂർക്കാവിൽ തുടക്കമാകും കൃഷിമന്ത്രി വി

പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലുള്ള എല്ലാവർക്കും പച്ചക്കറി വിത്തുകളും വൃക്ഷത്തൈകളും വിതരണം ചെയ്യുമെന്ന് വി

പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന മണ്ഡലമാക്കി വട്ടിയൂർക്കാവിനെ മാറ്റാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു